പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം

ന്യൂനമർദ്ദമായെന്ന് കേന്ദ്ര കാലാപ്പിസ്ഥ വകുപ്പ് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത

ഉപരാഷ്ട്രപതി പ്രധ്യാനമ്പ്രി തുടങ്ങിയവർ നാവികസേനാ ദിനത്തിൽ ആശംസകൾ നേർന്നു

കേരളത്തിൽ പലയിടങ്ങളിലും ശക്തമായ മഴിയ്ക്ക് സാധ്യതയുണ്ട്

ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോഗൃമന്ത്രി ഹർഷ് വർദ്ധൻ എന്നിവരും കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ഗുലാം നബി ആസാദ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയൻ തുടങ്ങിയവരും പങ്കെടുക്കും

ഉയർന്ന പരിശോധന നിരക്ക് രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും സഹായകരമായെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

ഫ്ട്ൻസ് ബ്രസീൽ ഇറ്റലി ബെൽജിയം റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും രോഗവ്യാപനം തുടരുകയാണ്

ഐ ടി സംഘടിപ്പിക്കുന്ന ഐ ഐ ടി

ആഗോള സമ്പദ്വൃവസ്ഥ സാങ്കേതികവിദൃ ആരോഗൃം സാർവത്രിക വിദൃാഭൃാസം തുടങ്ങിയ വിഷയങ്ങളാകും ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ചയാവുക

ഐഐടി പൂർവ്വ വിദ്യാർത്ഥികളുടെ സന്നദ്ധസേവക സംഘമാണ് പാൻ ഐഐടി യുഎസ്എ

ഒരു സുസ്ഥിര നയം പിന്തുടർച്ചയിലൂടെ സാമ്പത്തിക രംഗത്തെ വീണ്ടെടുക്കാൻ സാധിക്കും സ്രാമ്പത്തിക മേഖലയുടെ സ്ഥിരത കാത്തുസൂക്ഷിക്കാൻ റിസർവ്ബുക്ക് പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി ആവശ്യമായതെല്ലാം പ്രപ്പയ്യുമെന്നും ശ്രീ ശക്തികാന്ത ദാസ് വ്യക്തമാക്കി

രാജൃത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും യശസ്സുയർത്താനും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നാവിക സേന വലിയ പങ്കാണ് വഹിക്കുന്നത്

സൈനികശക്തി എന്നതിന് പുറമെ രക്ഷാപ്രവർത്തനങ്ങൾ മാനുഷിക ദൌത്യങ്ങൾ ദുരന്തനിവാരണം തുടങ്ങിയവയിലും ഇന്ത്യൻ നാവിക സേന മികവ് തെളിയിച്ചിട്ടുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശരാജ്യങ്ങളിൽ കുടുങ്ങി കിടന്ന ഇന്തൃക്കാരെ തിരികെ കൊണ്ടുവരാനും മറ്റു രാജ്യങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിലും സ്തുത്യർഹമായ സേവനമാണ് നാവിക സേന കാഴ്ച വച്ചത്

മേഖലയിലെയും ആഗോളതലത്തിലെയും സൈനികശക്തികളുമായി കൈകോർത്ത് സംയുക്ത നാവിക അഭ്യാസങ്ങളും ഈ വർഷം നാവിക സേന നടത്തി നാവിക സേനാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നിരവധി പരിപാടികളാണ് കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നടക്കുന്നത് രാജ്യസേവനത്തിനും ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുന്നതിലുമുള്ള സേനയുടെ പ്രതീബദ്ധത ഊട്ടിയുറപ്പിക്കാൻ ഈ ദിനം പ്രചോദനം നൽകുന്നത്യിൽ നാവികസേനാ തലവൻ അഡ്മിറൽ കരംബീർ സിംഗ് ആശ്സിച്ചു

ഇന്ത്യയുടെ നാവിക അതിർത്തി സംരക്ഷിക്കുകയും കടലിലെ വ്യാപാര പാതകൾ സുരക്ഷിതമാക്കുകയും അപകട ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുകയും ചെയ്യുന്ന നാവിക സേനയെ കുറിച്ച് രാജ്യത്തിന് അഭിമാനമാണുള്ളതെന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ടിറ്ററിൽ കുറിച്ചു ധീരത അർപ്പണബോധം ദേശസ്നേഹം നിസ്വാർത്ഥത തുടങ്ങിയവ കൈമുതലാക്കിയ നാവിക സേനാംഗങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി എം

ഇന്ത്യൻ നാവിക സേന നമ്മുടെ തീരങ്ങൾ സൈര്യം സംരക്ഷിക്കുകയും അടിയന്തിര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുകയും ചെയ്യുന്നതായി പ്രധാന മന്ത്രി നരേന്ദ്ര മോദി ചൂണ്ടികാട്ടി

അത്തരം പ്രചരണങ്ങൾക്ക് കർഷകർ ചെവി കൊടുക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

സ്വർണ്ണ വിലയിൽ വർധന

സി ബംഗളൂരു എഫ് സിയെ നേരിടും